തെലങ്കാനയിലും രാജസ്ഥാനിലും പ്രചാരണം ഉച്ഛസ്ഥായിയിൽ

ശബരിമല വിഷയത്തിൽ ഹൈക്കോടതി പരിഗണിക്കുന്ന ഹർജികൾ സുപ്രീംകോടതിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റ് അപേക്ഷ നൽകി

ലൂക്കാ മോഡ്രിച്ചിന്

അയർലണ്ട് ചൈനയെയും നേരിടും

വെള്ളിയാഴ്ചയാണ് ഇരു സംസ്ഥാനങ്ങളിലും വോട്ടെടുപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദീ രാജസ്ഥാനിലെ ജയ്പൂർ ഹനുമൻഗഡ് സിക്കാ എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലിയെ ഇന്ന് അഭിസംബോധന ച്ചെയ്യുട്ട്

ജെ പി അദ്ധ്യക്ഷൻ അമിത് ഷാ മുതിർന്ന പാർട്ടി നേതാക്കളായ രാജ്നാഥ്സിംഗ് നിഥിൻ ഗഡ്കരി സ്മൃതി ഇറാനി രാജ്യവർദ്ധൻ റാത്തോർ യോഗി അദിത്യനാഥ് മുഖ്യമന്ത്രി വസുന്ധരാരാജെ തുടങ്ങിയവർ സംസ്ഥാനത്ത് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു അശോക് ഗയ്ലോട്ട് സച്ചിൻ പൈലറ്റ് അഹമ്മദ് പട്ടേൽ ജ്യോതിരാദിത്യ സിന്ധ്യ തുടങ്ങിയവരാണ് കോൺഗ്രസിന്റെ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത് തെലങ്കാനയിലെ ഹൈദരാബാദിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു കോൺഗ്രസ് അദ്ധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഗഡ്വാളിലും തണ്ടൂരിലും വിവിധ തെരഞ്ഞെടുപ്പ് യോഗങ്ങളെ അഭിസംബോധന ചെയ്തു

കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾക്കിട്ടെയാണ് വോട്ടെടുപ്പ്

സംസ്ഥാനത്ത് പ്ലെട്ടങ്ങളിലായാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്

സംസ്ഥാനം ഭരിക്കുന്ന ബി ജെ പി സംഖ്യകക്ഷിയായ എ ജി പി മുഖ്യപ്രതിപക്ഷ കക്ഷിയായ എ

ഡി എഫ് മറ്റുപാർട്ടികൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എന്നിവരെല്ലാം പ്രചാരണ രംഗത്ത് ശക്തമായ സാന്നിധ്യം അറിയിച്ചു

മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് ഇക്കാര്യം അറിയിച്ചത്

കിട്ടിയാൽ ഉടൻ കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

മേഖലയിൽ കനത്ത പോലീസ് സംഘത്തെയും വിന്യസിച്ചിട്ടുണ്ട്

അതിവേഗത്തിലാണ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചു മുഴുവൻ രാഷ്ട്രങ്ങളും വിശ്വസിക്കുന്നത് ഇന്ത്യ വൈകാതെ ഈ മൂന്നു ലോക രാജ്യങ്ങളിൽ ഒന്നിന് പകരമാവുമെന്നാണ്

തിങ്കളാഴ്ച തോറും രണ്ട് മണിക്കൂർ നേരത്തേക്കാണ് വിവരാവകാശ നിയമപ്രകാരം ഇതിന് അനുമതി തിങ്കളാഴ്ച അവധിയാണെങ്കിൽ അടുത്ത പ്രവർത്തി ദിവസം അനുമതി നൽകും ഗവൺമെന്റ് ഇടപാടുകൾ സുതാര്യമാക്കുന്നതിനും ഗവൺമെന്റ് നടപടികളിൽ വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യങ്ങൾ കുറയ്ക്കുന്നതിനുമാണ് നടപടി

നാലു ദിവസമായി സഭക്കുള്ളിലെ സമരം ഇന്നലെ മുതൽ പുറത്തേക്കും വ്യാപിച്ചു

ഡി എഫിന്റെ മൂന്ന് എം

എ മാർ നിയമസഭാ കവാടത്തിനു മുന്നിൽ ആരംഭിച്ച അനിശ്ചിതകാല സത്യഗ്രഹം ഇന്ന് രണ്ടാം ദിവസത്തിലേക്ക് കടന്നു

ശിവകുമാർ പാറക്കൽ അബ്ദുള്ള എൻ

വിഷയത്തിൽ ബി ജെ

ജനറൽ സെക്രട്ടറി എ

രാധാകൃഷ്ണൻ സെക്രട്ടറിയറ്റിനു മുന്നിൽ ഇന്നലെ ആരംഭിച്ച നിരാഹാര സത്യഗ്രഹം തുടരുകയാണ്

ജെ

ദേശീയ അദ്ധ്യക്ഷൻ അമിത് ഷാ നിയോഗിച്ച എം

മാരുടെ സംഘം ഇന്നലെ നിരാഹാര പന്തലിൽ എത്തി

നിലക്കലിലും പമ്പയിലും ഇന്നലെ സമിതി സന്ദർശനം പൂർത്തിയാക്കിയിരുന്നു

കൂടുതൽ വിവരങ്ങളുമായി സുരേഷ്

ഫ്രഞ്ച് ഫുട്ബോൾ വാരികയായ ഫ്രാൻസ് ഫുട്ബോൾ നൽകുന്നതാണ് സ്വർണ്ണപ്പന്ത് എന്ന് അർത്ഥം വരുന്ന ബാലൺദ്യോർ

മികച്ച യുവകളിക്കാരൻ ഫ്രഞ്ച് താരം കിലിയൻ എംബാപ്പെയാണ്

രണ്ടു തവണ പുരസ്കാരം നേടിയ പോർച്ചുഗലിന്റെ ക്രിസ്റ്റിയാനോ റൊണാൾഡ്രോ അർജന്റീനയുടെ ലയണൽ മെസ്സി ഫ്രഞ്ച് താരങ്ങളായ ആന്റ്റോണിയോ ഗ്രീസ്മാൻ എന്നിവരെ മറികടന്നാണ് മോഡ്രിച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് മോഡ്രിച്ചിന്റെ മികവിലാണ് ഇക്കുറി ക്രൊയേഷ്യ റഷ്യയിൽ നടന്ന ലോകകപ്പ് ഫുട്ബോളിന്റെ ഫൈനലിൽ പ്രവേശിച്ചത്

സെപ്റ്റംബറിൽ ഫിഫയുടെ ദ് ബെസ്റ്റ് പുരസ്കാരത്തിലും മോഡ്രിച്ച് ഇരുവരെയും പിന്തള്ളി ക്രൊയേഷ്യയ്ക്കായി ലോകകപ്പിലും റയൽ മഡ്രിഡിനായി ചാംപ്യൻസ് ലീഗിലും മികച്ച പ്രകടനമാണ് മോഡ്രിച്ചിനെ പുരസ്കാരത്തിലെത്തിച്ചത്

ഫുട്ബോളിൽ ഇന്ന് കേരളത്തിനു നിർണ്ണായക പോരാട്ടം സെമി പ്രതീക്ഷ എങ്കിലും നിലനിൽത്തണമെങ്കിൽ കേരളത്തിന് ഇന്ന് ജയിച്ചേ മതിയാകു കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇന്ന് ജംഷദ്പൂർ എഫ് സിയുമായാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റുമുട്ടുന്നത്

സ്പെയിൻ ഫ്രാൻസ് മത്സരം സമനിലയിൽ പിരിഞ്ഞു

ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏതു തരത്തിലുള്ള സുരക്ഷാഭീഷണിയും നേരിടാൻ നാവിക സേന സജ്ജമാണെന്ന് വൈസ് അഡ്മിറൽ സുനിൽ ലാംബ ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

എല്ലാ വികസന പ്രവർത്തനങ്ങളും പശ്ചിമ നേവൽ കമാന്റുമായി കൂടിയാലോചിച്ചാണ് നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി